ജയശങ്കർ

എസ് എൽ ഫുട്ബോളിൽ ബെംഗളൂരു എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ

സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള കൊവീഷീൽഡ് വാക്സിനാണ് കേരളത്തിലെത്തിക്കുന്നതെന്ന് മന്ത്രി കെ

തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലെ റീജ്യണൽ വാക്സിൻ സ്റ്റോറുകളിൽ സൂക്ഷിക്കുന്ന വാക്സിൻ പിന്നീട് വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും

രുര കോവിഡ് പ്രതിസന്ധി ലോകത്തെ തീവ്രവാദ ആശങ്കകളെ കൂടുതൽ വഷളാക്കിയതായി വിദേശകാര്യ മന്ത്രി ഡോ

ആഗോള സമാധാനവും സുരക്ഷയും എന്ന വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പകർച്ചവ്യാധി മൂലമുണ്ടായ സാമ്പത്തിക അനിശ്ചിതത്വം തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങൾ പിന്തുടരുന്നവരെ കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുന്ന സ്ഥിതിയുണ്ടെന്ന് ജയശങ്കർ പറഞ്ഞു

അത്തരം വ്യത്യാസങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് അജണ്ടകളുണ്ടെന്നും തീവ്രവാദികളെ മറച്ചുവെക്കുന്നവർ കുറ്റക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമന്നും വിദേശകാര്യ മന്ത്രി ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ അംഗങ്ങളോട് അഭ്യർഥിച്ചു ഭീകര വാദത്തിന്റെ ഭീഷണിയെ നേരിടാൻ എട്ട് പോയിന്റ് കർമപദ്ധതിയും അദ്ദേഹം മുന്നോട്ടുവച്ചു രുഭ കൊവിഡ് പശ്ചാത്തലത്തിൽ പ്രദർശനം നിർത്തി വെച്ചിരുന്ന സംസ്ഥാനത്തെ സിനിമ തിയേറ്ററുകൾ ഇന്ന് മുതൽ വീണ്ടും പ്രവർത്തനമാരംഭിക്കും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി തിയേറ്റർ ഉടമകൾ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം

രുഭ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ യുവജനങ്ങൾ മാതൃകാപരമായി സേവനം നടത്തിയെന്ന് മന്ത്രി ഇ

സ്വാമി വിവേകാനന്ദന്റെ ജൻമദിനത്തോട് അനുബന്ധിച്ച് യുവജന കമ്മീഷൻ സംഘടിപ്പിച്ച ദേശീയ യുവജന ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

യുവതയാണ് കാലഘട്ടത്തെയും ഭാവിയേയുമെല്ലാം നിയന്ത്രിക്കുന്ന ചാലകശക്തിയായി നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

പദ്ധതി പൂർത്തിയാകുന്നതോടെ കൊച്ചി പാലക്കാട് മേഖല ദക്ഷിണേന്ത്യയിലെ പ്രധാന മാനുഫാക്ചറിങ് ഹബ് ആയി മാറുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി

രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് കുറഞ്ഞ പ്രീമിയം നിരക്കിൽ സമഗ്രമായ പരിരക്ഷ നൽകുന്നതാണ് പദ്ധതി വിളവെടുപ്പിന് മുമ്പും ശേഷവുമുള്ള എല്ലാ കഷ്ട നഷ്ടങ്ങൾക്കും പദ്ധതിയുടെ പരിരക്ഷ ലഭിക്കുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു രും സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കന്യാകുമാരിയിലും സമീപത്തും ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരളം മാഹി തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ മൂന്നു ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു

മത്സ്യബന്ധനത്തിന് പോകരുതെന്നും അറിയിപ്പുണ്ട് രും കാലം തെറ്റി പെയ്ത മഴയിൽ മലപ്പുറം ജില്ലയിൽ വ്യാപക കൃഷിനാശമെന്ന് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ പ്രാഥമിക കണക്ക്

പരപ്പനങ്ങാടി ബ്ലോക്കിലാണ് കൂടുതൽ നാശനഷ്ടം

എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം ഇന്ന് ജന പ്രതിനിധി സഭയിൽ അവതരിപ്പിക്കും

എസ് പാർലമെന്റ് മന്ദിരത്തിന് നേരെ ആക്രമണം നടത്താൻ കലാപകാരികൾക്ക് പ്രോത്സാഹനം നൽകിയെന്ന് ആരോപിച്ചാണ് പ്രമേയം ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷമുളള സഭയിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാകുന്നതോടെ സെനറ്റിൽ വിചാരണ നടപടികൾക്ക് തുടക്കമാകും രണ്ടു തവണ കുറ്റ വിചാരണ ചെയ്യപ്പെടുന്ന ആദ്യ യു എസ് പ്രസിഡന്റാണ് ട്രംപ്

എൽ ഫുട്ബോളിൽ ബെംഗളൂരു എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും സമനിലയിൽ പിരിഞ്ഞു ഗോവയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി ബെംഗളൂരു പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്തും നോർത്ത് ഈസ്റ്റ് ഏഴാം സ്ഥാനത്തും തുടരുന്നു ഇന്ന് ഒഡിഷ എഫ് സി ചെന്നൈയിൻ എഫ് സി യുമായി ഏറ്റുമുട്ടും രാത്രി ഏഴരയ്ക്ക് ഗോവയിലാണ് മത്സരം

പ്രസാർഭാരതി സി ഇ ഒ ഷഹ്സി ശേഖർ വെമ്പട്ടിയുടെ അധ്യക്ഷതയിലുളള സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

രംഭ കേന്ദ്ര ഗവൺമെന്റിൻെറ പഠന ലിഖനാ അഭിയാൻ സാക്ഷരതാ സ്കീമിൽ കേരളത്തെ ഉൾപ്പെടുത്തിയതായി മന്ത്രി സി

അഞ്ച് ജില്ലകളിൽ ഈ വർഷം പദ്ധതി നടപ്പിലാക്കും

പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്

രുര കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾ ഏറ്റെടുത്ത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പറഞ്ഞു